പ്രതിരോധ കുത്തിവെയ്പ്പിന് ഇന്ന് തുടക്കം പ്രതിദിന കോവിഡ് ബാധിതരുട എണ്ണം നാല് ലക്ഷം കടന്നു

വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി

ഇന്ന് മെയ് ദിനം

മഹാരാഷ്ട്ര കർണാടക കേരളം ഉത്തർപ്രദേശ് ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലാണ് രോഗവ്യാപനം രൂക്ഷമായി തുടരുന്നത്

ആകാശവാണി

കോഴിക്കോട് ജില്ലയിലാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചത്

പ്രധാനമന്ത്രി ഗര്മിബ്പ് ്കല്യാൺ അന്ന യോജന വിപുലീകരിച്ചതും ഒരു രാജ്യ് കൂഒരു റേഷൻ കാർഡ് പദ്ധതി പ്രവർത്തനക്ഷമമായതും കൂടുതൽ ആളുകളിലേക്ക് പ്രയോജന മെത്താൻ സഹായകമായിട്ടുണ്ട് മുൻനിര ആരോഗ്യ പ്രവർത്തകർക്കുള്ള ഇൺഷുറൻസ് പദ്ധതി ആറുമാസത്തേക്ക് കൂടി നീട്ടാനും തീരുമാനിച്ചിട്ടുണ്ട് വിതരണ ശൃംഖലയും ഗതാഗതവും മെച്ചപ്പെടുത്തി സുഗമമായ ചരക്കുനീക്കം ഉറപ്പുവരുത്താനും പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി

കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കാനാണ് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചത് ആശുപത്രികളുടെ സേവനം മെച്ചപ്പെടുത്താനും ഓക്സിജൻ വെന്റിലേറ്ററുകൾ വൃക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ സ്കാനർ ടെസ്റ്റിംഗ് ഉപകരണങ്ങൾ കിറ്റുകൾ എന്നിവയ്ക്കായും തുക വിനിയോഗിക്കാം

വാണിജൃ സ്ഥാപനങ്ങൾ തമ്മിലുള്ള സാങ്കേതിക കൈമാറ്റത്തിലൂടെ വിദേശത്ത് ഉത്പാദിപ്പിക്കുന്നതിനുള്ള സാധ്യതയാണ് അന്വേഷിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു വൈറസിന് വകഭേദം ഉണ്ടായത് മൂലമുള്ള വ്യാപനം കണക്കിലെടുത്ത് കോവിഡ് വാക്സിനുകൾ കൂടുതൽ ആവശ്യമായി വരുന്നുണ്ട്

കൂടുതൽ ആളുകൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് റൂഷ്യൻ വാക്സിന്റെ വരവ് കരുത്തേകും

ലഖ് നൌ കാൺപൂർ അല്യെബ്ബാദ് വാരണാസി ഗോരഖ്പൂർ മീററ്റ് ബറേലി എന്നിവിടങ്ങളിലാണ് പ്രതിരോധ കുത്തിവയ്പ്പ് ആരംഭിച്ചത്

അടിസ്ഥാന സൌകരൃ വികസനത്തിന് കേന്ദ്ര സർക്കാർ വളരെയധികം പ്രാധാന്യം നൽകി വരുന്നു

എസ്

പുതുച്ചേരിയിൽ പോരാട്ടം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യുപി എയും എ ഐ

ആർ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങുന്നവർ കൈയിൽ മതിയായ രേഖകൾ കരുതുണ്ട് ദീർഘദൂര ബസുകൾ തീവണ്ടി വിമാനയാത്ര എന്നീവ്യ്ക്ക് തടസ്സമില്ല കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത വിവാഹം പോലുള്ള ചടങ്ങുകൾ കോവിഡ് ക്ട്രിന്ദ്ണ്ഡങ്ങൾ പാലിച്ച് നടത്താം നിയമസഭാ തെരഞ്ഞെട്ടുപ്പ് ഫലം വരാനിരിക്കെ സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് ത്തൂഹ്ഗാദപ്രകടനങ്ങളോ കൂടിച്ചേരലുകളോ പാടില്ല എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്

രാജ്യത്തിന്റെ വികസനത്തിൽ സുപ്രധാന സംഭാവനകളാണ് ഇരുസംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു കോവിഡ് മഹാമാരിയെ അതിവേഗം മറികടക്കാൻ ഈ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് സാധിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു

കോവിഡ് വാർഡിൽ പുലർച്ചെ ഒരു മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി

ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് വിജ്ഞാപനം ഇതുസംബന്ധിച്ച് പുറപ്പെടുവിച്ചു

ഇന്ന് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ദില്ലിയിലെ ഗുരുദ്ധാര സിസ് ഗഞ്ച് സാഹിബ് സന്ദർശിച്ച് പ്രാർത്ഥന നടത്തി പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളൊഴിവാക്കിയാണ് അദ്ദേഹം ഗുരുദ്വാര സന്ദർശിച്ചത്